തലത്തിൽ പ്രതിരോധവും നിയന്ത്രണങ്ങളും ശക്തമാക്കാൻ കേന്ദ്ര നിർദ്ദേശം

ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയ്ക്ടി അദ്ധ്യക്ഷതയിൽ സർവകക്ഷിയോഗം നടക്കുന്നു രോഗ സംക്രമണം ഉയ്ക്കുന്ന എറണാകുളം ജില്ലയിൽ ന് ദുരന്തനിവാരണ സ്റ്റിയ്മപ്രകാരം കൂടുതൽ നിയന്ത്രണങ്ങൾ

പരിശോധിക്കാൻ തീരുമാനം സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയ്ക്ക് പുതിയ മാർഗ്ഗരേഖ പുറത്തിറക്കി

വൊക്കേഷണൽ ഹയർ സെക്കൻറി പ്രാക്ടിക്കൽ പരീക്ഷകൾ മാറ്റിവച്ചു

കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം

സാമൂഹിക രാഷ്ട്രീയ മതപരമായ ഒത്തുഭൂചേരലുകളും ഉത്സവങ്ങളും കർശനമായി കണ്ടെയിൻ ്റ്റ്മുന്റ് സോണുകളിൽ നിരോധിക്കണമെന്നും ആരോഗ്യമന്ത്രിാല്ലയ്ം നിർദ്ദേശിച്ചു

ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് നിയന്ത്രണങ്ങൾ കർശനമാക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്നത് ഉൾപ്പടെ കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും

ആകാശവാണി വാർത്തകൾക്കു വേണ്ടി കൊച്ചിയിൽ നിന്നും ജോസഫ് മാർട്ടിൻ

കോവിഡ് കോഴിക്കോട്ട് ് കോവിഡ് രണ്ടാം തരംഗത്തിൽ കോഴിക്കോട് ജില്ലയിൽ രോഗം ബാധിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും കാര്യമായ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരാണ്

ഇവരുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി നടപടി സ്വീകരിക്കാൻ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജാഗ്രതാ സമിതികളും വീടുകളിൽ മതിയായ സൌകരൃങ്ങളില്ലാത്തവരെ മാറ്റി പാർപ്പിച്ച് ചികിത്സിക്കാൻ താത്ക്കാലിക ചികിത്സാ കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്

ഞങ്ങളുടെ ജില്ലാ പ്രതിനിധി കെ

ഇവർക്ക് കൂടുതൽ രോ്ഗലക്ഷണങ്ങൾ പ്രകടമായാൽ അടുത്ത കാറ്റഗറിയില്ലേക്ക് മാറ്റി ചികിത്സിയ്ക്കണമെന്നും മാർഗ്ഗരേഖ്യിൽ പറയുന്നു വാക്സിൻ ധനമന്ത്രി സംസ്ഥാനത്തിന് ആവശ്യിമാർയ കോവിഡ് വാക്സിൻ രൊക്കം പണം നൽകി പ്പാങ്ങുമെന്നും ട്രഷറിയിൽ ഇതിന് ആവശ്യമായ പണമുണ്ടെന്നും ധനമന്ത്രി തോമസ് ഐസക്ക് കേരളത്തിൽ എല്ലാവർക്കും സൌജന്യ വാക്സിൻ നൽകുമെന്നും തോമസ് ഐസക് പറഞ്ഞു

ജനിതക മാറ്റം സംഭവിച്ച വൈറസിനെതിരെയും വലിയ തോതിൽ പരിരക്ഷ നൽകാൻ വാക്സിനുകൾക്ക് സാധിക്കുമെന്ന് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ഡോ എസ് അശ്വതി ആകാശവാണി വാർത്തകളോട്

യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് പതിനൊന്ന് വെൻറിലേറ്ററുകൾ വിവിധ ആശുപത്രികൾക്ക് നൽകിയതായി എൻ

രാവിലെ ഒൻപത് മുതൽ ഒരു മണിവരെയും ഉച്ചക്ക് ശേഷം രണ്ട് മുതീൽ അഞ്ചുമണി വരെയുമായിരിക്കും ഇനി റേഷൻകടകൾ പ്രവർത്തിക്കുക

ഹയർ സെക്കന്ററി വൊക്കേഷണൽ ഹയർ സെക്കന്ററി പരീക്ഷകൾ ഇന്ന് പൂർത്തിയാകും സിദ്ദിഖ് കാപ്പൻ പത്രപ്രവർത്തകൻ സിദ്ദീഖ് കാപ്പന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് യു

മുഖ്യമന്ത്രി യോഗി ആദിതൃ നാഥിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു സിദ്ദിഖ് കാപ്പനെ അടിയന്തരമായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു

ഉത്തർപ്രദേശ് ഭരണകൂടം സിദ്ധിഖ് കാപ്പന്റെ മനുഷ്യാവകാശം നിഷേധിക്കരുതെന്ന് ഉമ്മേശ് ചെന്നിത്തല ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു

എസ്റ് സ്ഥാപക നേതാവുമായ കെ

തിരുവനന്തപുരത്തെ സ്പ്രിക്കാരൃ ആശുപത്രിയിൽ അണുബാധയേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് ഗൌരിയമ്മ ഇപ്പോൾ

എൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും

ഇന്നലെ നടന്ന മത്സരങ്ങളിൽ ഡൽഹി ക്യാപിറ്റൽസ് സൺ റൈസേഴ്സ് ഹൈദരാബാദിനെയും ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെയും പരാജയപ്പെടുത്തി